ഫിഫയുടെ മികച്ച ലോക ഫുട്ബോളറായി വീണ്ടും അർജന്റീനി യൻ താരം ലയണൽ മെസ്സിയെ തെരഞ്ഞെടുത്തു

അമേരിക്കൻ താരം മേഗൻ റെപ്പിനോ യെ മികച്ച വനിതാ താരമായും ലിവർപൂ ളിന്റെ അലിസൺ ബക്കറിനെ മികച്ച ഗോൾക്കീപ്പറായും തെരഞ്ഞെ ടുത്തു ജുർഗൻ ക്ലോപ്പാണ് മികച്ച പരിശീലകൻ